സംസ്ഥാനത്തെ അഞ്ച് നിയമസഭാ സീറ്റുകളിലെ ഉപതെ രഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാ പിച്ചു

സംഘർഷം നിലനിൽക്കുന്ന പിറവം സെന്റ് മേരീസ് പള്ളിയിൽ നിന്ന് യാക്കോബായ വിഭാഗത്തെ ഉച്ചയ്ക്ക് മുമ്പ് ഒഴിപ്പിക്കണമെന്ന് ഹൈക്കോടതി കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ഇന്ന് യെല്ലോ അലർട്ട്

ഫ്ളാറ്റുകളിൽ നിന്ന് താമസക്കാരെ ഞായറാഴ്ച മുതൽ ഒഴിപ്പിക്കും നാല് ദിവസം കൊണ്ട് ഒഴിപ്പിക്കൽ പൂർത്തി യാക്കാനാണ് ഗവൺമെന്റ് നീക്കം അതേസമയം ഒഴി പ്പിക്കൽ നടപടികൾ സാമാന്യ നീതിയുടെ ലംഘനമാ ണെന്ന് ഫ്ളാറ്റുടമകൾ പറഞ്ഞു

ഉടമകൾ സ്ുപ്രീംകോ ടതി ചീഫ് ജസ്റ്റിസിനും ദേശീയ മനുഷ്യാവകാശ കമ്മീ ഷനും കത്തയച്ചിട്ടുണ്ട് മരടിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് ബാധൃതയുണ്ടെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തിരു വനന്തപുരത്ത് പറഞ്ഞു ഫ്ളാറ്റുടമകളോട് മാനുഷിക പരിഗണന കാണിക്കണമെന്നും അവർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് നിയമപരമായ വഴി തേടാ വുന്നതാണെന്നും കോടിയേരി മാധ്യമങ്ങളോട് പറഞ്ഞു മരടിലെ അനധികൃതമായി നിർമിച്ച നാല് പാർപ്പിട സമുച്ചയ ത്തിലെ വൈദ്യുതി കുടിവെള്ള കണക്ഷനുകൾ വിഛേ ദിച്ചു പുലർച്ചെ അഞ്ച് മണിയോടെ വൈദ്യുതിയും രാവിലെ ജലവിതരണവും നിർത്തുകയായിരുന്നു

സംസ്ഥാനത്തെ അഞ്ച് നിയ മ സഭാ സീറ്റു ക ളിലെ ഉപതെരഞ്ഞെടുപ്പിൽ എൽ

എഫ് സ്ഥാനാത്ഥികളെ സി

എം സംസ്ഥാന സെക്രട്ടറി കോട്ടിയേരി ബാല കൃഷ്ണൻ തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചു മഞ്ചേശ്വ രത്ത് തുളു അക്കാദമി മുൻചെയർമാനും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവുമായ എം ശങ്കർറൈ എറണാകുളത്ത് അഭിഭാഷകനായ മനു റോയ് അരൂരിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം മനുസി പുളിക്കൽ കോന്നിയിൽ ഡി

എഫ്

യു ജിനീഷ് കുമാർ വട്ടിയൂർക്കാവിൽ തിരുവനന്ത പുരം കോർപറേഷൻ മേയർ വി കെ പ്രശാന്ത് എന്നിവ രാണ് മത്സരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന ഗവൺമെന്റിന്റെ വിലയിരു ത്തൽ അല്ലെന്നും സാമുദായിക സമവാകൃങ്ങളെ അടി സ്ഥാനമാക്കിയല്ല സിപി ഐ എം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതെന്നും കോടിയേരി വാർത്താ സമ്മേള നത്തിൽ പറഞ്ഞു എല്ലാവരെയും ഏകോപിപ്പിച്ച് എൽ

എഫ് മത്സരിക്കുന്ന അഞ്ച് മണ്ഡലങ്ങളിലും തെര ഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുമെന്നും അടുത്തമാസം അഞ്ചിന് ബൂത്ത് കൺവെൻഷനുകൾ പൂർത്തീകരിക്കു മെന്നും അദ്ദേഹം അറിയിച്ചു

ഇതുസംബന്ധിച്ച ഗതാഗത വകു പ്പിന്റെ കരട് നിർദേശം നിയമ സെക്രട്ടറി പരിശോധിച്ച് ഗവൺമെന്റിന് കൈമാറി ഗതാഗത നിയമമന്ത്രിമാർ കൂടി യാലോചിച്ചു ശേഷമായിരിക്കും അന്തിമൃതീരുമാനം ഗുരു തര നിയമലംഘനങ്ങൾക്കൊഴികെ ഏർപ്പെടുത്തിയ ഭീമ മായ പിഴ കുറയ്ക്കാനാണ് തീരുമാനം ഏതൊക്കെ നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കാമെന്ന് തീരുമാനിച്ച് ഗവൺമെന്റ് പുനർ വിജ്ഞാപ്പനം ഇറക്കും പെരുമാറ്റ ച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെയാകും ഇത് സംഘർഷം നിലനിൽക്കുന്ന പിറവം സെന്റ് മേരീസ് പള്ളിയിൽ നിന്ന് യാക്കോബായ വിഭാഗത്തെ പൂർണ മായി ഒഴിപ്പിച്ച് ഉച്ചയ്ക്ക് റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി നിർദേശിച്ചു

സുപ്രീംകോടതി വിധി നടപ്പാക്കണമെന്നും ജില്ലാ കലക്ടർ പള്ളി ഏറ്റെടുക്കണമെന്നും ആവശൃപ്പെട്ട് ഓർത്തഡോക്സ് വിഭാഗം ഹൈക്കോടതിയെ സമീപി ച്ചിരുന്നു

ചോക്സിയുടെ അപേക്ഷകളെല്ലാം തള്ളിക്കളഞ്ഞതിന് ശേഷമായിരിക്കും ഇന്ത്യയിൽ തിരിച്ചയക്കുക ചോക്സി ക്കെതിരെ ചുമത്തിയ കേസുകളിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ടുണ്ടാ കില്ലെന്നും ബ്രൌൺ പറഞ്ഞു

ഐയും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് രാജീവ് ഗാന്ധി വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷയനുഭവി ക്കുന്ന റോബർട്ട്പയസ് പരോളിനായി മദ്റാസ് ഹൈക്കോടതിയെ സമീപിച്ചു മകന്റെ വിവാഹത്തിന് ഒരു മാസത്തെ പ്രോൾ അനുവദിക്കണമെന്നാണ് ആവശ്യം

വെള്ളപ്പൊക്ക ബാധിത പ്രദേ ശങ്ങളിൽ നിന്ന് പതിനായിരത്തിലേറെ പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഒഴിപ്പിച്ചതായി പൂനെ ജില്ലാ ഭരണകൂടം അറിയിച്ചു താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ തിഹാർ ജയിലിൽ ജുഡീ ഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന കർണാടകയിലെ കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാറിനെ പാർട്ടി നേതാക്കളായ അഹമ്മദ് പട്ടേലും കെ സി വേണുഗോ പാലും ഇന്ന് സന്ദർശിക്കും ഈ മാസം മൂന്നിനാണ് ശിവ കുമാറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് അറസ്റ്റ് ചെയ്തത് കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തികൾ നയങ്ങൾ തെറ്റാ ണെന്നും ഇതിന്റെ ഭാരം വഹിക്കുന്നത് ജനങ്ങളാണെന്നും എ ഐ

സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ന്യൂഡൽഹിയിൽ പറഞ്ഞു പഞ്ചാബ് ആൻഡ് മഹാ രാഷ്ട്ര കോ ഓപറേറ്റീവ് ബാങ്കിൽ നിയന്ത്രണമേർപ്പെ ടുത്തിയ റിസർവ് ബാങ്ക് നടപടിയെ പ്രിയങ്ക വിമർശിച്ചു

ബി ഐ നടപടിമൂലം ആളുകൾക്ക് ബാങ്കിൽ നിന്നും പണം പിൻവലിക്കാൻ സാധിക്കു ന്നി ല്ലെന്നും ഗവൺമെന്റ് നയങ്ങൾ തെറ്റാണെന്നും ഉന്നത ഉദ്യോഗ സ്ഥർക്കും ഇതിൽ പങ്കുണ്ടെന്നും പ്രിയങ്കാഗാന്ധി കുറ്റ പ്പെടുത്തി

ഗുർദേവ്സിങ് എന്നയാളെയാണ് കള്ളനോ ട്ടുമായി പിടികൂടിയത് വിദേശകാര്യ പാർലമെന്ററി സ്റ്റാന്റിങ്ങ് കമ്മറ്റി അംഗമായി ഡോ ശശിതരൂർ എംപിയെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള നാമനിർദേശം ചെയ്തു നേരത്തെ ഡോ തരൂരായി രുന്നു സമിതിയുടെ ചെയർമാൻ കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെ മുതൽ മഴയുടെ ശക്തി കുറയുമെന്നാണ് വിലയിരുത്തൽ അറബിക്കട ലിന്റെ തെക്ക് കിഴക്കൻ തീരത്തും മാലിദ്ധീപ് മേഖല യിലും മത്സൃബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പു ണ്ട്

പാഠം ഒന്ന് പാഠ ത്തേക്ക് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കക്കോടി പടിഞ്ഞാറ്റുംമുറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഹരിതകേരളം മിഷന്റെ ഭാഗമായി സംസ്ഥാനത്തെ തരിശ്ഭൂമികളിൽ കൃഷിയിറക്കാൻ ഗവൺമെന്റ് തീരുമാ നിച്ചതായി അദ്ദേഹം അറിയിച്ചു മൈസൂർ ദേശീയപാതയിലെ രാത്രിയാത്രാ നിരോധനത്തിനെ തിരെ അതിർത്തി ഗ്രാമമായ മൂലഹള്ളി ചെക്ക്പോസ്റ്റിൽ പ്രതിഷേധ സംഗമം തുടങ്ങി ജില്ലയിലെ എം

എ മാരും ജനപ്രതിനിധികളും സംഗമത്തിൽ പങ്കെടുക്കുന്നു ണ്ട് പ്രതിഷേധത്തിന്റെ ഭാഗമായി മൂലഹള്ളി ചെക്ക് പോസ്റ്റ് ഉപരോധിച്ചു ഒക്ടോബർ അഞ്ചിന് യാത്രാ നിരോധനത്തിനെതിരെ യു ഡി എഫ് വയനാട് ജില്ലാ ഹർത്താലിനും ആഹാനം നൽകിയിട്ടുണ്ട് ലോക ടൂറിസം ദിനാചരണത്തിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാ ടനം നാളെ വിലങ്ങൻകുന്നിൽ നടക്കും ടൂറിസം അനു ബന്ധ വിഷയങ്ങളിൽ സെമിനാറും ശിൽപശാലയും പൊതുചർച്ചയും ദിനാചരണത്തിന്റെ ഭാഗമായി സംഘ ടിപ്പിക്കുന്നുണ്ട്

മുസ്ലീഗ് ജില്ലാ അധ്യക്ഷൻമാരുടെ യോഗം ഇന്ന് കോഴിക്കോ ട്ട് ലീഗ് ഹൌസിൽ ചേരും ഉപതെരഞ്ഞെടുപ്പും ഒക്ടോ ബർ രണ്ടിന്റെ റാലിയുടെ ഒരുക്കങ്ങളും യോഗം വിലയി രുത്തും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

എ മജീദ് യോഗത്തിൽ പങ്കെടുക്കും ചെങ്കൽ വ്യവസായ അസോസിയേഷൻ കണ്ണൂർ ജില്ലയിൽ നടത്തി വന്ന സമരം അവസാനിപ്പിച്ചു

ടൂറിസം വകുപ്പിന്റെ ഗ്രാന്റ് കേരളാ ഷോപ്പിങ്ങ് ഫെസ്റ്റിവൽ ഈ വർഷം നടത്തേണ്ടതില്ലെന്ന് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചു വിനോദ സഞ്ചാര മേഖലക്ക് വാർഷിക വ്യാപാര മേള വഴി ഉദ്ദേശിച്ച നേട്ടം ക്ടൈവരിക്കാൻ കഴി യാത്തതിനെ തുടർന്നാണ് നടപടി

സംസ്ഥാനത്ത് ഇന്ധന പിലയിൽ വർധന തുടരുന്നു പെട്രോൾ ലിറ്ററിന് ആറു പൈസയും ഡീസലിന് ഏഴ് പൈസയുമാണ് ഇന്ന് വർധിച്ചത് ഇന്നലെ ഇന്ധന വില യിൽ മാറ്റമില്ലായിരുന്നു

വയലാർ സാഹിത്യ പുരസ്കാര നിർണ്ണയ സമിതി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പ്രൊഫസർ എം

ഇക്കൊല്ലത്തെ പുർസ്കാരം അർഹതയില്ലാത്ത കൃതിക്ക് നൽകാൻ ബാഹ്യ സമ്മർദ്ധം ഉണ്ടായതിൽ പ്രതി ഷേധിച്ചാണ് രാജി ഇന്നലെയാണ് രാജിക്കത്ത് അദ്ദേഹം കൈമാറിയത് വയനാട് ജില്ലയിലെ പ്രളയബാധിതരിൽ അടിയന്തര ധനസഹായം ലഭിക്കാത്തവർക്ക് തുക വിതരണം ചെയ്യാൻ ഇന്നുതന്നെ നടപടികൾ പൂർത്തിയാക്കണമെന്ന് ജില്ലാ കലക്ടർ തഹസിൽദാർമാർക്ക് നിർദേശം നൽകി സോഫ്റ്റ് വെയർ കുഴപ്പങ്ങളും സാങ്കേതിക പ്രശ്നങ്ങ ളുമാണ് വിതരണം വൈകാൻ കാരണമായതെന്ന് അധി കൃതർ അറിയിച്ചു

ആരുടേയും പരു ക്ക് ഗുരുതരമല്ല സ്കൂൾ വിദ്യാർഥികളടക്കം പരിക്കേ റ്റവർ കോഴിക്കോട് മെഡിക്കൽ കോളജ് ആശുപത്രി യിലും ചെറൂപ്പ പ്രാഥമികാരോഗ്യകേന്ദ്രത്തിലും ചികിത്സ തേടി

കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് സമീപം ഹാളിൽ തീപിടുത്തം

ഹാളിന്റെ അടുക്കളയ്ക്കടുത്ത് ഇൻസിനേറ്റർ റൂമിലാണ് തീപിടിത്ത മുണ്ടായത് കോഴിക്കോട് ബീച്ച് സ്റ്റേഷനിലെ അഗ്നിശ മന സേനയുടെ മൂന്ന് യൂണിറ്റ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി അരലക്ഷം രൂപയുടെ നഷ്ടം കണക്കാ ക്കുന്നു